ബീഹാറിൽ എട്ട് പുതിയി ് അംഗീങ്ങളെ ഉൾപ്പെടുത്തി നിതീഷ് കുമാർ മന്ത്രൂസ്ഭ വീകസിപ്പിച്ചു

ലോകകപ്പ് ക്രിക്കറ്റിൽ ദക്ഷിണാഫ്രിക്ക ബംഗ്ലാദേശ് മത്സരം വൈകിട്ട്

കഴിഞ്ഞ ദിവമാണ് ശ്രീ

ജമ്മു കശ്മീരിലേതടക്കം വിവിധ സംസ്ഥാനങ്ങളിലെ ഗവർണർമാരുമായും സുരക്ഷാവിഭാഗം തലവൻമാരുമായും അദ്ദേഹം കൂടിക്കാഴ്ച്ച നടത്തിയിരുന്നു ന്യൂഡൽഹിയിലെ ദേശീയ പോലീസ് സ്മാരകത്തിൽ അദ്ദേഹം രക്തസാക്ഷികളായ ധീരജവാൻമാർക്ക് ഇന്ന് ആദരാജ്ഞലികൾ അർപ്പിച്ചു

കമ്മീഷൻ പുറത്തുവിട്ട കണക്കിൽ മണ്ഡലം തിരിച്ചുള്ള എണ്ണിയ വോട്ടുകളുടെ നമ്പറും നേരത്തെ പോൾ ചെയ്തതായി കമ്മീഷൻ സൈറ്റിൽ കാണിക്കുന്ന വോട്ടുകളുടെ എണ്ണവും വ്യത്യാസമുള്ളതായി കണ്ടെത്തിയിരുന്നു

തമിഴ്നാട്ടിലെ കാഞ്ചീപുരം ധർമപുരി മണ്ഡലം ഉത്തർപ്രദേശിലെ മഥുര ബിഹാറിലെ ഔറംഗബാദ് മണ്ഡലം എന്നിവിടങ്ങളിലെ പോളിംഗ് കണക്കുകളിൽ വ്യത്യാസം കണ്ടെത്തിയെന്നായിരുന്നു ആക്ഷേപം ന്യൂസ് ഡെസ്ക് ആകാശവാണി

പാട്ന രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ നിയുക്ത മന്ത്രിമാർക്ക് ഗവർണർ ലാൽജി ടണ്ടൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു അശോക് ചൌധരി നീരജ് കുമാർ സഞ്ജയ്ഷാ ശ്യാംരജക് ഭീമാഭാരതി രാംസേവക് സിംഗ് നരേന്ദ്ര നാരായൺ യാദവ് ലക്ഷ്മീശ്വർ റായ് എന്നിവരാണ് പുതിയ മന്ത്രിമാർ എട്ടുപേരും ജനതാദൾ യുണൈറ്റഡ് എം എൽ എ മാരാണ്

ആക്രമണത്തിൽ നാല് ജവാന്മാർക്ക് പരിക്കേറ്റു

ഏറ്റുമുട്ടലിൽ അഞ്ച് മാവോവാദികൾക്ക് വെടിയേറ്റെന്ന് പോലീസ് സൂപ്രണ്ട് വൈ

പുൽവാമയിൽ പിംഗ്ലാനയിലെ കോൺഗ്രസ് പ്രാദേശിക നേതാവ് ഒമർജാക്കിന്റെ വീടിന് നേരെ ഇന്ന് പുലർച്ചെയാണ് ആക്രമണം ഉണ്ടായത്

രണ്ടു ഗ്രനേഡുകൾ പ്രയോഗിച്ചതെങ്കിലും ഒരെണ്ണം മാത്രമാണ് പൊട്ടിയതെന്ന് പോലീസ് പറഞ്ഞും രണ്ടാമത്തെ ഗ്രനേഡ് ബോംബ് സ്കാഡ് നിർവീര്യമാക്കി

ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും നിറച്ച സേനാ വാഹനം തട്ടിയെടുത്തശേഷം പോലീസ് സ്റ്റേഷനിലേക്ക് ഇടിച്ചുകയറ്റുകയായിരുന്നു താലിബാൻ സംഘാംഗമായ ചാവേർ ഇന്നലെ രാത്രിയാണ് ആക്രമണം നടത്തിയത്

ഇന്നലെ മുഖ്യമന്ത്രി ജയ്റാം താക്കൂറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം

പട്ടിക വിഭാഗം ഒ

സി വിഭാഗ ത്തിൽപ്പെട്ടവർക്ക് ബാധകമല്ല ദരിദ്രംകൂടുംബങ്ങൾക്ക് സൌജന്യ വൈദ്യുതി നൽകുന്ന മൂഖൃമന്ത്രി റ്റോഷ്ട്നി ്യോജന പദ്ധതിയും ഉടൻ ആരംഭിക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചു

ഇന്ത്യയുടെ ആദ്യ മത്സരം ബുധനാഴ്ച സതാംപ്ടണ്ണിൽ ദക്ഷിണാഫ്രിക്കക്കെതിരെ നടക്കും ബ്രിസ്റ്റോളിൽ ഇന്നലെ രാത്രി നടന്ന മത്സരത്തിൽ ഓസ് ട്രേലിയ അഫ്ഗാനിസ്ഥാനെ ഏഴ് വിക്കറ്റിന് പരാജയപ്പെടുത്തി

അതേസമയം റൊമാനിയയുടെട്സിമോണ ഹാലപ്പ് മൂന്നാം റൌണ്ടിൽ പ്രവേശിച്ചു പുരുഷ വിഭാഗ്ത്തിൽ ലോക ഒന്നാം നമ്പർ താരം നൊവാക്ക് ദ്യോക്കോവിച്ച് ആറാം സീഡ് സ്റ്റെഫാനോസ് സിസിഫെസ് എന്നിവർ മൂന്നാക്റൌങ്ടിൽ കടന്നു

ഹിന്ദി ഔദ്യോഗിക ഭാഷയല്ലാത്ത സംസ്ഥാനങ്ങളിൽ പ്രാദേശിക ഭാഷയ്ക്കും ഇംഗ്ലീഷിനുമൊപ്പം ഹിന്ദിയും പഠിപ്പിക്കണമെന്ന് നിർദ്ദേശിക്കുന്ന വിദ്യാഭ്യാസ നയത്തിനെ കുറിച്ച് സമ്മിശ്രപ്രതികരണങ്ങൾ ഉയർന്ന സാഹചര്യത്തിലാണ് കേന്ദ്രം നിലപാട് വ്യക്തമാക്കിയത്

ഇക്കാര്യത്തിൽ സംസ്ഥാന ഗവൺമെൻ്റുകളുമായി ആശ്രി്ടു വിനിമയം നടത്തിയും പൊതുജനാഭിപ്രായത്തിലൂടെയും മാത്രിമേ ് അവസാന തീരുമാനം ഉണ്ടാകൂ എന്ന് മാനവ വിഭവശ്ഷി മന്ത്രാലയം പത്രക്കുറിപ്പിൽ അറിയിച്ചു

ഹിന്ദി പഠനം നിർബന്ധമാക്കിയിട്ടില്ലെന്നും ഹിന്ദി പഠിക്കണമെന്ന നിർദ്ദേശം മുമ്പോട്ട് വയ്ക്കുകയാണ് ചെയ്തതെന്നും എല്ലാ ഭാഷകളും പ്രോത്സാഹിപ്പിക്കുമെന്നും ശ്രീ പ്രകാശ് ജാവദേക്കർ വ്യക്തമാക്കി കഴിഞ്ഞ തവണ പ്രകാശ് ജാവദേക്കർ മാനവവിഭവ ശേഷി മന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണ് പുതിയ വിദ്യാഭ്യാസ നയത്തിന്റെ കരടിന് രൂപം നൽകിയത് വെള്ളിയാഴ്ചയാണ് മുൻ ഐ എസ്

ന്യൂസ് ഡെസ്ക് ആകാശവാണി

രാഷ്ട്രപതി ജനങ്ങൾക്ക് ശോഭനമായ ഭാവി ആശംസിച്ചു കഠിനാധാനികളായ തെലുങ്കാനയിലെ ജനങ്ങൾ രാജ്യപുരോഗതിക്ക് മികച്ച സംഭാവനകൾ നൽകിയിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ സന്ദേശത്തിൽ പറഞ്ഞു

ഡൽഹി ഷിംല മൈസൂർ അഹമ്മദാബ്രിദ്ട് റാഞ്ചി എന്നിവയാണ് പട്ടികയിൽ ഇടംപിടിച്ച നഗരങ്ങൾ ്രിണ്ടാംവട്ടം പ്രധാനമന്ത്രിയായി ശ്രീ

സി

കോൺഗ്രസ്സുമായി ലയിക്കുമെന്ന ഊഹങ്ങളെ തള്ളി എൻ സി

സി

ക്ക് അതിന്റേതായ വ്യക്തിത്വമുണ്ടെന്നും അത് അങ്ങനെ തന്നെ നില നിർത്തുമെന്നും ഇന്നലെ മുംബൈയിൽ നടന്ന പാർട്ടി യോഗത്തിൽ ശ്രീ

ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം അവലോകനം ചെയ്യുന്ന തിനും മഹാരാഷ്ട്ര നിയമസഭ തിരഞ്ഞെടുപ്പിലേക്കുള്ള മുന്നൊരുക്കം സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതിനുമാണ് ഇന്നലെ പാർട്ടി യോഗം കൂടിയത്

ലഹരി മാഫിയയുടെ കെണിയിൽ അകപ്പെടാതെ ശ്രദ്ധിക്കാൻ കുട്ടികൾ തന്നെ തയ്യാറാവണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കണ്ണൂർ ജില്ലയിലെ ധർമ്മടം നിയോജക മണ്ഡലത്തിൽ എസ് എസ് എൽ സി പ്തസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും സ്കൂളുകളെയും അനുമോദിക്കുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി

കെയും ബി

സി എല്ലിന്റെയും സഹകരണത്തോടെ ജില്ലാഭരണകൂടത്തിന്റെ ആഭിമുഖ്യത്തിൽ വിജയകരമായി നടുപ്പാക്കിവരുന്ന റോഷ്നി പദ്ധതിയുടെ മൂന്നാം ഘട്ടത്തിന്റെ ഒന്നുഭൂർഗ്ഗിക ഉദ്ഘാടനം ജൂൺ ആറിന് മുഖ്യമന്ത്രി പിണറായി പ്പിജ്യൻ നിർവഹിക്കും